എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിന് ആദ്യ വിജയം ഡൽഹി കാപ്പിറ്റൽസിനെ തോൽപ്പിച്ചത് മൂന്ന് വിക്കറ്റിന്

ഹോട്ടലുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും തിരക്ക് ഒഴിവാക്കാൻ ഹോം ഡെലിവറി സംവിധാനം പ്രോത്സാഹിപ്പിക്കണം ട്യൂഷൻ സെന്ററുകളിലെ അധ്യാപകരും ജീവനക്കാരും കോവിഡ് വാക്സിൻ എടുക്കുകയോ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കുകയോ വേണമെന്നും സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി നിർദേശം നൽകിയിട്ടുണ്ട് രും കോവിഡ് പ്രതിരോധത്തിനായി അടുത്ത ഏതാനും ദിവസങ്ങളിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂന്നിയ നടപടികൾക്ക് പൊലീസ് പ്രാധാന്യം നൽകുമെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു സാമൂഹിക അകലം മാസ്ക് സാനിറ്റൈസർ ഉപയോഗം എന്നിവ സംബന്ധിച്ചായിരിക്കും ബോധവൽക്കരണം മുതിർന്ന പൌരന്മാർ ജനത്തിരക്കേറിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കാൻ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മടക്കിഅയക്കും ഇന്നത്തെയും നാളെത്തെയും കോവിഡ് പരിശോധനയ്ക്ക് ശേഷം തുടർ മാർഗ നിർദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്നും ലോക്നാഥ് ബെഹ്റ അറിയിച്ചു വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപാരികളുടെ സഹകരണത്തോടെ ക്യൂ സമ്പ്രദായം ഏർപ്പെടുത്തി തിരക്ക് നിയന്ത്രിക്കാനും പൊലീസ് നടപടിയെടുക്കും രംഭ കോവിഡ് ഭീതിയിൽ ആളുകൾ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് തടയാൻ വ്യാപക ബോധവൽക്കരണം നടത്തണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദേശം നൽകി അവശ്യ സാധന വിതരണം സംബന്ധിച്ച പരാതികൾ കൈകാര്യം ചെയ്യാൻ ഹെൽപ്പ്ലൈൻ സംവിധാനം ഏർപ്പെടുത്തണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട് പൂഴ്ത്തിവെപ്പും വിലക്കയറ്റവും സാധന ദൌർലഭ്യവും ഒഴിവാക്കാൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പും അളവ് തൂക്ക വകുപ്പും ആരോഗ്യ പൊലീസ് വകുപ്പുകളെയും ഉൾപ്പെടുത്തി സംഘങ്ങൾ രൂപീകരിക്കാനും കേന്ദ്രം ആവശ്യപ്പെട്ടു അവശ്യ സാധന വിതരണ കേന്ദ്രങ്ങളെ കർശന നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്നും നിർദേശം നൽകിയിട്ടുണ്ട് രും രാജ്യത്തെ കോവിഡ് സാഹചര്യം ചർച്ചചെയ്യാൻ നിയമസഭാ സ്പീക്കർമാരുടെയും സഭാ അധ്യക്ഷരുടെയും യോഗം തിങ്കളാഴ്ച ചേരും

പാർലമെന്ററികാര്യ മന്ത്രിമാരും ചീഫ് വിപ്പ് പ്രതിപക്ഷ നേതാക്കൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും പകർച്ച വ്യാധികൾ നിയന്ത്രിക്കുന്നതിൽ ജനപ്രതിനിധികളുടെ പങ്കിനെ കേന്ദ്രീകരിച്ചായിരിക്കും യോഗം

മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് പുതിയ രോഗികളുടെ എണ്ണം

കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഇത്തവണയും മംഗളാ ദേവി ക്ഷേത്രത്തിലെ ചിത്ര പൌർണ്ണമി ഉത്സവം ഉണ്ടാവില്ല കോവിഡ് കേസുകൾ വർധിക്കുന്ന സാഹചര്യത്തിൽ വ്യാപാര വാണിജ്യ മേഖലയിൽ നിയന്ത്രണം കർശനമാക്കാൻ ഇടുക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട് തമിഴ്നാട് അതിർത്തി വഴി വരുന്ന എല്ലാവരെയും നിർബന്ധിത കോവിഡ് ടെസ്റ്റിന് വിധേയരാക്കും വ്യാപാര വാണിജ്യ മേഖലയിലെ നിയന്ത്രണം കർശനമാക്കുന്ന കാര്യത്തിൽ രാവിലെ വ്യാപാരി വ്യവസായി ഹോട്ടൽ റെസ്റ്റൊറന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരുമായി ഓൺലൈനിൽ യോഗം ചേരും

രുപ റഷ്യൻ നിർമ്മിത കോവിഡ് വാക്സിൻ സ്ഫുട്നിക് വി യുടെ ആദ്യ ബാച്ച് ഈ മാസം തന്നെ ഇന്ത്യയിലെത്തിക്കുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ സ്ഥാനപതി ബാല വെങ്കിടേഷ് വർമ്മ അറിയിച്ചു ഇന്ത്യയിൽ സ്ഫുട്നിക് വാക്സിന്റെ നിർമ്മാണം പ്രതിമാസം അഞ്ചുകോടി ഡോസ് എന്ന നിലയിലേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇന്ത്യയിൽ അനുമതി ലഭിക്കുന്ന മൂന്നാമത്തെ കോവിഡ് വാക്സിനാണ് സ്ഫുട്നിക് വി രുര കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പുരാവസ്തു ഗവേഷണ വകുപ്പിന് കീഴിലെ മുഴുവൻ സ്മാരകങ്ങളും മ്യൂസിയങ്ങളും ഒരു മാസത്തേക്ക് അടച്ചിടാൻ കേന്ദ്രം തീരുമാനിച്ചു

ഇന്നലെ ഡൽഹിയിൽ ചേർന്ന ഉന്നതാധികാര സമിതി യോഗത്തിലാണ് ഈ തീരുമാനം

പുതിയ തിയ്യതി പിന്നീട് അറിയിക്കുമെന്ന് ആരോഗ്യമന്ത്രി ഡോ

എൽ ക്രിക്കറ്റിൽ മുംബൈയിൽ ഇന്നലെ രാജസ്ഥാൻ റോയൽസ് ഡൽഹി കാപ്പിറ്റൽസിനെ തോൽപ്പിച്ച് സീസണിലെ ആദ്യ വിജയം നേടി

ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് മുംബൈയിൽ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്ങ്സിനെ നേരിടും രുര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്നുണ്ടായേക്കും

ഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണ നാണ് ഈ ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നത് തടയാനാണ് ക്രൈംബ്രാഞ്ച് നടപടിയെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു രുഭ സംസ്ഥാനത്ത് അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകളും അടച്ചു പൂട്ടണമെന്ന് സംസ്ഥാന ബാലാവകാശ കമീഷൻ ഉത്തരവിട്ടു ഗവൺമെന്റിന്റെയോ സി ബി എസ് ഇ യുടെയോ അംഗീകാരമില്ലാതെ സുരക്ഷാ ക്രമീകരണങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതെ നിരവധി സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന പരാതികളെ തുടർന്നാണ് ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ്

പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ സംവരണ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും പ്രവേശനം രുര നാളെയും മറ്റന്നാളും കേരളത്തിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട്

മീ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇടുക്കി ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനവും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവും പ്രധാന ചർച്ചയായേക്കും രമേ കൊച്ചിയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ പരിക്കേറ്റ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലിയെ ദുബായിൽ സ്പൈനൽ സർജറിയ്ക്ക് വിധേയനാക്കി അദ്ദേഹം സുഖം പ്രാപിച്ച് വരികയാണെന്ന് ലുലു ഗ്രൂപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു രും പട്ടാമ്പിക്കും തിരുനാവായക്കുമിടയിൽ ഇന്നു നടത്താനിരുന്ന റെയിൽപ്പാതയിലെ അറ്റക്കുറ്റപ്പണികൾ മാറ്റി എറണാകുളം കണ്ണൂർ സ്പെഷ്യൽ ട്രെയിൻ ഇന്ന് പതിവ് പോലെ സർവീസ് നടത്തുമെന്ന് ദക്ഷിണ റെയിൽവെ അറിയിച്ചു രംഭ കോവിഡ് ചികിത്സയിൽ കഴിയുന്ന സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെയും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിയുടെ യും ആരോഗ്യനില തൃപ്തികരമാണെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളജ് അധികൃതർ അറിയിച്ചു

ഐ പി റൂമിൽ നിരീക്ഷണത്തിലാണ് രുര പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡണ്ട് സി പി മുഹമ്മദ് ബഷീറിന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ സംസ്ഥാന കമ്മറ്റി കോഴിക്കോട്ട് പ്രതിഷേധിച്ചു പ്രതികളെ അടിയന്തരമായി പിടികൂടാൻ പൊലീസ് തയ്യാറാകണമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അബ്ദുൽ സത്താർ ആവശ്യപ്പെട്ടു